മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ കോവിഡ് ബാധിതർ

ദേദ അവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണം നാല് ലക്ഷത്തോടടുക്കുന്നു

ശേഷിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ചുവരികയാണ് ദേദ കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഓക്സിജൻ കോൺസൻട്രേറ്ററുകൾ വാങ്ങാൻ തീരുമാനിച്ചതായി കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് എണ്ണവും മുൻസിപ്പാലിറ്റികൾ അഞ്ചുവീതവും ഗ്രാമപഞ്ചായത്തുകൾ രണ്ടുവീതവും ഉപകരണങ്ങൾ വാങ്ങും തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം ദേഴ കണ്ണൂർ ജില്ലയിൽ കൊവിഡ് കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ കൊവിഡ് രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രി പൂർണമായും ഏറ്റെടുത്ത് കണ്ണൂർ ജില്ലാ കലക്ടർ ഉത്തരവായി വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ദേദ പോലീസ് ആമ്പുലൻസുകളിൽ ഓക്സിജൻ കോൺസൻട്രേറ്ററുകൾ ലഭ്യമാക്കുന്ന പദ്ധതി തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്തു

അവശ്യ സന്ദർഭങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഈ സൌകര്യം ഉപയോഗിക്കാമെന്ന് ബെഹ്റ അറിയിച്ചു രെട തൃശൂർ ജില്ലയിൽ കോവിഡ് ചികിത്സാ സൌകര്യങ്ങൾ വർധിപ്പിക്കാൻ അടിയന്തര നടപടിയെടുത്തുവരികയാണെന്ന് മന്ത്രി എ

ജില്ലയിലെ കോവിഡ് രണ്ടാംതരംഗം രൂക്ഷമായി തുടരുകയാണെന്ന് അവലോകനയോഗത്തിൽ മന്ത്രി പറഞ്ഞു രെട ലക്ഷദ്വീപിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ കർഫ്യു ഒരാഴ്ചത്തേക്കുകൂടി നീട്ടി കോവിഡ് വ്യാപനം കൂടുതലായ കവരത്തി ആന്ത്രോത്ത് അമലി കൽപ്പേനി ദ്വീപുകളിൽ രാവിലെ ഏഴ് മുതൽ പത്ത് വരെയും അഗത്തി മിനിക്കോയി കിൽത്താൻ ചേത്ത്ലാത്ത് ദ്വീപുകളിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയും കർഫ്യുവിൽ ഇളവ് ലഭിക്കും രെട കോവിഡ്കാലത്ത് അവശ്യസാധനങ്ങൾ വീടുകളിലെ ത്തിക്കാൻ സപ്പൈക്കോയും കുടുംബശ്രീയും സൌകര്യമൊരുക്കി

ഫോണിലോ വാട്സാപ്പിലോ അയക്കുന്ന ഓർഡർ പ്രകാരം കുടുംബശ്രീ പ്രവർത്തകർ സപ്പൈക്കോയിൽനിന്ന് സാധനങ്ങൾ വീട്ടിലെത്തിക്കും ഉച്ചവരെ ലഭിക്കുന്ന ഓർഡറുകൾ പ്രകാരം ഉച്ചകഴിഞ്ഞ് സാധനങ്ങൾ എത്തിച്ചുനൽകും

സാധനങ്ങൾ എത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ കൈവശ്യം ബിൽതുക നൽകണം

കോവിഡ് വ്യാപനത്തിന്റെയും ലോക്ക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ പെരുന്നാൾ നമസ്കാരം വീടുകളിലാകും നടത്തുക ഈദാഘോഷത്തോടൊപ്പം മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി സാന്ത്വന പ്രവർത്തനങ്ങളിലും വിശ്വാസികൾ സജീവമാകും ദേദ ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വീടുകളിൽ മാംസ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വിൽപ്പനശാലകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കാൻ വിൽപ്പനക്കാരുടെ സംഘടനകളോട് ഹോം ഡെലിവറിയിലേക്ക് മാറാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കണം

രുഭ ഇന്ന് ലോക നഴ്സസ് ദിനം രോഗാതുരമായ സമൂഹത്തിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച നഴ്സുമാർക്കായി നീക്കിവെച്ച ദിവസം ആധുനിക നഴ്സിങിന്റെ സ്ഥാപക ഫ്ളോറൻസ് നൈറ്റിങ്ഗേലിന്റെ ജന്മദിനമാണ് ലോകമെങ്ങും നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ന്യൂസ് ഡെസ്കിൽനിന്ന് രജന കെ

ലോകമെങ്ങും കോവിഡ് മഹാമാരിയുടെ ദുരന്തം പെയ്തിറങ്ങുമ്പോൾ സ്വന്തം ജീവന്റെ സുരക്ഷപോലും നോക്കാതെ നിസ്വാർത്ഥ സേവനത്തിന്റെ മഹത്തായ ജീവിതപാതയാണ് നഴ്സുമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കുകയെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം കോവിഡിന്റെ ദുരന്ത സാഹചര്യത്തിൽ രോഗനിയന്ത്രണത്തിനും പരിചരണത്തിനും നഴ്സുമാർ നൽകുന്ന സംഭാവനകൾ മുൻനിർത്തിയാണ് ലോകാരോഗ്യസംഘടന ദിനാചരണ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് രാജ്യാന്തരതലത്തിൽത്തന്നെ നഴ്സുമാരെ ആദരിക്കുന്ന പരിപാടികളും നഴ്സിങിന്റെ മഹത്വം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് നിപ രോഗികളെ പരിചരിക്കുന്നതിനിടെ സ്വന്തം ജീവൻപോലും ബലിനൽകിയ കോഴിക്കോട്ടെ ലിനി സജീഷിനെയും ഈ നഴ്സസ് ദിനത്തിൽ പ്രത്യേകം ഓർമിക്കാതെവയ്യ

രെട കേരളത്തിൽ വെള്ളിയാഴ്ചമുതൽ ശക്തമായ മഴയ്ക്കും കടൽമേഖലയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്ക് കിഴക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും ഇത് ശക്തിപ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും വ്യാഴാഴ്ചമുതൽ മീൻപിടുത്തക്കാർ കേരള തീരത്തുനിന്ന് മീൻപിടുത്തത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് വെള്ളിയാഴ്ച മുതൽ മീൻപിടുത്തം പൂർണമായി നിരോധിച്ചു പുതിയ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധനം നിലവിലുണ്ടാകുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു